മൂന്ന് പുതിയ ലാബുകൾ പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യും

മുൻ രാഷ്ട്രപതി എ

ചരമവാർഷികം ഇന്ന് ഉപരാഷ്ട്രപതി കേന്ദ്ര ആഭൃന്തരമന്ത്രി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

നോയിഡ മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഹൈ ത്രൂ പുട്ട് ലാബുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് പ്രതിദിനം പതിനായിരത്തിലധികം സാമ്പിളുകൾ പരിശോധിക്കാനാവുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാനും ലാബ് ജീവനക്കാർക്ക് രോഗം വരാനുള്ള സാധ്യത ഒഴിവാക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും മഞ്ഞപ്പിത്തം ക്ഷയം എയ്ഡ്സ് ഡെങ്കു തുടങ്ങിയ കോവിഡ് ഇതര രോഗങ്ങളുടെ പരിശോധനയും ഇവിടെ നടത്താനാകും

ഹർഷ് വർദ്ധൻ മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ഉത്തീർപ്പദേശ് മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും

ഇന്നലെ മാത്രം അര ലക്ഷത്തോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം ഒൻപത് ലക്ഷം കടന്നു

ഇതിനാൽ തിരുവനന്തപുരത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്

ഇന്നലെ മാത്രം എട്ട് ആരോഗ്യപ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു

ജില്ലിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായി ഇടവ മുതൽ പെരുമാതുറ വരെയുള്ള ഒന്നാം തൂീര്ദ്ദേശ് സോണിൽ കോവിഡ് പരിശോധനയ്ക്കായി മൊബ്രൈൽ പരിശോധനാ യൂണിറ്റുകൾ സജ്ജമാക്കുന്നുണ്ട് കൂടാത്രി പ്യാപനം രൂക്ഷമായ തീരദേശ മേഖലകളിൽ വയോജന്റങ്ങൾക്കും മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്കുമായി മാതൃക്ടാ റിവേഴ്സ് കാറന്റൈയിൻ സെന്റർ പരിരക്ഷാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു വള്ളക്കടവ് സിദ്ധ ആശുപത്രിക്കുവേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലാണ് പരിരക്ഷാ കേന്ദ്രം ആരംഭിച്ചത് കൂടാതെ എല്ലാ കണ്ടെയിൻമെന്റ് സോണുകളിലും അണുനശീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കണ്ടെയിൻമെന്റ് സോണുകളിലെ നിയന്ത്രണങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളും പരിഗണിച്ചേക്കും

ധനബിൽ പാസ്സാക്കുന്നതിന് ഇന്ന് ചേരാനിരുന്ന നിയമസഭാ സമ്മേളനം കോവിഡ് പശ്ചാത്തലത്തിൽ റദ്ദാക്കിയതിനെ തുടർന്നാണിത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഉടൻ ഉണ്ടാകില്ലെന്നാണ് സൂചന

മലപ്പുറം തുവ്വൂർ സ്വദേശി ഹുസൈൻ ഇടുക്കി രാജാക്കാട് സ്വദേശി സി

കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗളൂരുവിൽ നിന്നെത്തിയ ഹുസൈൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു

എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കാൻസൂർ ്ച്ച്കിത്സയിലായിരുന്ന വിജയനെ കോവിഡ് ഫലം പൊസ്ട്രിറ്റീവായതിനെ തുടർന്ന് എറണാകുളം മെഡിക്കൽ ക്ടോളേജീൽ പ്രവേശിപ്പിക്കുകയായിരുന്നു

എഫ് ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു രാജ്യസുരക്ഷ നിലനിർത്താൻ സി

എഫ് എന്നും മുൻനിരയിലാണെന്ന് പ്രധാനമന്ത്രി ടിറ്റർ സന്ദേശത്തിൽ കുറിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും സി ആർ

ധൈര്യം ത്യാഗം എന്നിവയുടെ പ്രതീകമാണ് സി

അമിത് ഷാ ട്വിറ്ററിൽ കുറിച്ചു

ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം

മാൻകോത്ത് സെക്ടറിൽ നിയന്ത്രണ്ട്രേഖയിലാണ് പാക് സേന ഇന്ന് രാവിട്ട്ല ്പത്തരയോടെ വെടിവയ്പ്പും ഷെല്ലാക്രമണവും ആരംഭിച്ചത് ഇന്ത്യൻ സേന പ്രത്യാക്രമണം നടത്തുന്നതായി പ്രതിരോധ വക്താവ് കേണൽ ദവീന്ദർ ആനന്ദ് പറഞ്ഞു

ടി സെക്രട്ടി എം ശിവശങ്കറിനെ എൻ ഐ എ കൊച്ചിയിൽ ചോദ്യം ചെയ്യുകയാണ് ഇത് രണ്ടാമത്തെ തവണയാണ് ശിവശങ്കറിനെ എൻ ഐ

പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്

കനത്ത സുരക്ഷയാണ് കൊച്ചി കടവന്ത്രയിലെ എൻ

എ ഓഫീസ് പരിസരത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നത്

ജെ പി കൌൺസിലർ ടി

ഇന്നലെ മൃതദേഹം സംസ്ക്കരിക്കുന്നത് സംബന്ധിച്ച് ബി ജെ പി കൌൺസിലറുടെ നേതൃത്വത്തിൽ മുട്ടമ്പലം പൊതുശ്മശാനത്തിനു മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു

മുരളീധരൻ എം

തലസ്ഥാനം രീണ്ട് ആഴ്ച അടച്ചിട്ടും രോഗവ്യാപനം ഉണ്ടായത് ഗവ്ൺമെന്റിന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം ആരോപിച്ചു

എ

മേയ് ആറിന് ആരംഭിച്ച വന്ദേ ഭാരത് മിഷനിൽ ഇതുവരെ എട്ട് ലക്ഷത്തി പതിനാലായിരത്തോളം പേരാണ് വിവിധ മാർഗ്ഗങ്ങളിലൂടെ രാജ്യത്ത് തിരിച്ചെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു

മീൻപിടുത്ത തുറമുഖത്തിലും അഴീക്കൽ ബസ്സ്റ്റാൻഡിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി അലവിൽ വഴിയും വളപട്ടണം വഴിയും അഴീക്കലിലേക്കുള്ള ബസ് സർവ്വീസ് നിർത്തി പരമ്പരാഗത വള്ളക്കാരും കടലിൽ പോകുന്നില്ല

കൂടാതെ രോഗം സ്ഥിരീകരിച്ചവരിൽ ചിലർ വാളാട് നടന്ന വിവാഹത്തിലും പങ്കെടുത്തതായാണ് സൂചന വിവാഹത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരോടും കാറന്റൈയിനിൽ പോകാനും നിർദേശിച്ചിട്ടുണ്ട്

ആർ ടി

തലശ്ശേരി ഡി

എസ് പി ഓഫീസും കൺട്രോൾ റൂമും അടച്ചിടും

അസമിൽ തുടർച്ചയായ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ തകർന്നു പോയ അടിസ്ഥാന സൌകര്യങ്ങൾ പുനസ്ഥാപിക്കാൻ സാന്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാന മന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര മന്ത്രി ജിതേന്ദ്ര സിംഗ് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിനെ അറിയിച്ചു